എസ് എൽ ഫുട്ബോളിൽ എടികെ മോഹൻ ബഗാന് ജയം വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരാണസിയിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുമായി ഇന്ന് വീഡിയോ കോൺഫറൻസിങ്ങ് സംവദിക്കും വാക്സിൻ ലഭിച്ചശേഷം ഉണ്ടായ വഴി ആദ്യ അനുഭവങ്ങൾ അവർ പ്രധാനമന്ത്രിയുമായി പങ്കുവെക്കും ലോകത്തെ ഏറ്റവും വലിയ വാക്സിനേഷൻ പദ്ധതി സുഗമമായി നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ശാസ്ത്രജ്ഞർ രാഷ്ട്രീയ നേതാക്കൾ ഉദ്യോഗസ്ഥർ മറ്റ് ബന്ധപ്പെട്ടവർ തുടങ്ങിയവരുമായി പ്രധാനമന്ത്രി നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് വരാണസിയിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുമായി പ്രധാനമന്ത്രി ഇന്ന് സംസാരിക്കുന്നത്

ആർക്കും തന്നെ വാക്സിൻ മൂലം പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

രുര ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമൂല മാറ്റങ്ങൾക്ക് ഗവൺമെന്റ് ഉടൻ തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സർവ്വകലാശാലകളേയും പ്രധാന സ്ഥാപനങ്ങളേയും മികവിന്റെ കേന്ദ്രങ്ങളാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഇവിടങ്ങളിൽ പശ്ചാത്തല സൌകര്യം വലിയതോതിൽ വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്ത് സംസ്ഥാനത്തെ അക്കാദമിക്ക് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വിദഗ്ധരുമായി സംവദിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സർവ്വകലാശാല ചട്ടങ്ങളിൽ ആവശ്യമായ മാറ്റം വരുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു കൂടുതൽ ഫിനിഷിങ്ങ് സ്കൂളുകൾ സ്ഥാപിക്കുകയും നിലവിലുള്ളവ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ടി നയത്തിൽ ആവശ്യമെങ്കിൽ കാലാനുസ്വത മാറ്റങ്ങൾ വരുത്താൻ ഗവൺമെന്റ് തയാറാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

മുനിസിപ്പാലിറ്റി ഇതിനാവശ്യമായ തീരുമാനമെടുത്ത് സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇക്കാര്യം ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് ബന്ധപ്പെട്ടവരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രംഭ സംസ്ഥാന നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഇന്ന് അവസാനിക്കും

കോഴിക്കോട് സ്വദേശികളായ അലൻ ഷുഹൈബ് താഹ ഫസൽ എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു രുര കർഷകസംഘടനാ പ്രതിനിധികളുമായി കേന്ദ്രഗവൺമെന്റ് ഇന്ന് ന്യൂഡൽഹിയിൽ വീണ്ടും ചർച്ച നടത്തും

കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ മൂന്ന് കാർഷിക നിയമങ്ങൾ നടപ്പാക്കുന്നത് ഒന്നര വർഷത്തേക്ക് നിർത്തിവെയ്ക്കാമെന്ന് ഗവൺമെന്റ് അറിയിച്ചിരുന്നു കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നവും ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് ഒരുക്കമാണെന്നും അതുവഴി അനുയോജ്യ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നും കൃഷിമന്ത്രി നരേന്ദ്രസിങ്ങ് തോമർ ചർച്ചയിൽ സംഘടനാ പ്രതിനിധികളെ അറിയിച്ചിരുന്നു അതേസമയം കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യം പരിഗണിക്കുന്നതുവരെ ഗവൺമെന്റിന്റെ നിർദേശം പരിഗണിക്കില്ലെന്നും ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്നും സംയുക്ത കിസാൻ മോർച്ച യോഗത്തിന് ശേഷം കർഷക സംഘടനാ പ്രതിനിധികൾ അറിയിച്ചു രംഭ എല്ലാ ജില്ലകളിലും ബ്ലോക്ക് തലത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അടുത്ത മാസം പൊതുജന പരാതി അദാലത്ത് സംഘടിപ്പിക്കും അടുത്ത മാസം ഒന്ന് രണ്ട് നാല് തീയതികളിൽ കൊല്ലം ആലപ്പുഴ തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് അദാലത്ത്

സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ച കൊല്ലം പന്മന ഗ്രാമപഞ്ചായത്തിലെ പറമ്പിമുക്ക് ചോല ആലപ്പുഴ ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ പി എച്ച് സി വാർഡ് എറണാകുളം കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ മുൻസിപ്പൽ വാർഡ് തൃശൂർ കോർപ്പറേഷനിലെ പുല്ലഴി വാർഡ് കോഴിക്കോട് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ താത്തൂർപൊയ്യിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ തില്ലങ്കേരി എന്നിവിടങ്ങളിലാണ് ഇന്നലെ വോട്ടെടുപ്പ് നടന്നത്

ഗോവയിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ചെന്നൈയിൻ എഫ്സിയെ അവർ തോൽപ്പിച്ചത്

രുര കൊല്ലം ജില്ലയുടെ തീരദേശ ജാഗ്രതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരദേശ ജാഗ്രതാ സമിതി യോഗം തീരുമാനിച്ചു നിലവിലെ കടലോര ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും ഹാർബറുകളിലും സുരക്ഷാസംവിധാനങ്ങൾ ശക്തമാക്കും തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹോംസ്റ്റേ ലോഡ്ജുകൾ വില്ലകൾ എന്നിവിടങ്ങളിലെ പരിശോധനകൾ കർശനമാക്കാനും ഗൂഗിൾ മീറ്റ് വഴി ചേർന്ന യോഗം തീരുമാനിച്ചു രുര കോവിഡ് പ്രതിരോധത്തിനായി കോട്ടക്കൽ സർവ്വകലാശാല നടത്തിയ ഗവേഷണ ഫലങ്ങൾ യു എസ് നാഷണൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പൊതുജനാരോഗ്യ അടിയന്തര പ്രബന്ധങ്ങളിൽ ഇടം നേടി ആര്യവൈദ്യശാല ഔഷധസസ്യ ഗവേഷണ കേന്ദ്രത്തിൽ നടത്തിയ രാസഘടനാ പഠനത്തിൽ ആന്റി വൈറൽ ഗുണങ്ങളും രോഗ പ്രതിരോധശേഷി വർധിപ്പിക്കാൻ സഹായകമായ നിരവധി തന്മാത്രകളെയും കണ്ടെത്തിയിരുന്നു രും കോവിഡ് പ്രതിസന്ധികൾ മറികടക്കുന്നതിന് ബാങ്കുകൾക്ക് സുപ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്ന് എൻ

സാധാരണക്കാർക്ക് ലോണുകൾ അനുവദിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഓൺലൈൻ ആയി ചേർന്ന കൊല്ലം ജില്ലാതല ബാങ്കിങ്ങ് അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രും ത്യശൂർ ജില്ലയിലെ പ്രധാന മാർക്കറ്റുകളായ ശക്തൻ ജയ്ഹിന്ദ് എന്നിവിടങ്ങളിൽ കോവിഡ് നിയമലംഘനം നടത്തുന്ന കടകൾ അടപ്പിക്കുമെന്ന് ജില്ലാ കലക്ടർ എസ്

മുൻ കാലങ്ങളിൽ മാർക്കറ്റ് മൊത്തം അടപ്പിക്കുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി നിയമലംഘനം നടത്തുന്ന കടകൾ മാത്രം അടപ്പിക്കും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്ത കടകളുടെ ലൈസൻസ് റദ്ദാക്കുന്ന നപടികളിലേക്കും നീങ്ങുമെന്നും കലക്ടർ പറഞ്ഞു രുര കട്ടപ്പന നഗരസഭാ പ്രദേശത്തും സമീപ പഞ്ചായത്തുകളിലും ഒരു മാസമായി കോവിഡ് വ്യാപന തോത് ഉയർന്ന സാഹചര്യത്തിൽ പൊതുസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് കോവിഡ് പരിശോധനാ ക്യാമ്പ് നടത്തും ടൌണിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഉടമകൾ ഹോട്ടൽ തൊഴിലാളികൾ ബസ് ജീവനക്കാർ ലോട്ടറി ടിക്കറ്റ് വ്യാപാരികൾ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു രുര വ്യാപാര സ്ഥാപനങ്ങൾ ജ്വല്ലറി ഹോട്ടൽ തുണിക്കട കൊറിയർ പാഴ്സൽ സർവ്വീസ് എന്നിവ തുറന്നു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ജീവനക്കാരും പൊതുജനങ്ങളും കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു പൊതുജനങ്ങളുമായി അടുത്തിടപഴകുന്ന ജീവനക്കാർ മൂന്നാഴ്ച്ച കൂടുമ്പോൾ കോവിഡ് പരിശോധന നടത്തണമെന്നും ഡിഎംഒ പറഞ്ഞു